ലക്ഷദ്ധീപ് സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാവിലെ അഗ ത്തിയിലെത്തും

യു അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിവരങ്ങൾ ലഭിച്ചതായി ഡൽഹി പൊലീസ് കലാലയങ്ങളിൽ ഭാവിയിൽ ഇന്റേണൽ മാർക്ക് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന തായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

ള അ ഢ അഴിമതിക്കെതിരായി സ്വീകരിക്കുന്ന നടപടികൾ കോർപ്പറേറ്റ് മേഖലയെ തകർക്കാ നാണെന്ന തരത്തിൽ കാണരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്യത്തെ വ്യവസായികൾക്ക് നിർഭയമായും തടസ്സങ്ങളില്ലാതെയും മുന്നോട്ട് പോകുന്നതിന് സുതാര്യമായ അന്തരീക്ഷമാണ് ഗവൺമെന്റ് ഒരുക്കുന്നതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ഒരു ചടങ്ങിൽ പറഞ്ഞു വ്യവസായങ്ങളെ സഹാ യിക്കാൻ നിയമങ്ങളിൽ ഇളവു വരുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയി ച്ചും ലക്ഷദ്ധീപ് സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ എത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാവിലെ അഗത്തിയിലേക്ക് പോകും പിന്നീട് കവരത്തിയിൽ എത്തുന്ന അദ്ദേഹത്തിന് വിവിധ സേനാ വിഭാഗങ്ങൾ ചേർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകും ലക്ഷദ്വീപിലെ ആദ്യത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപ ത്രിക്ക് കവരത്തിയിൽ രാഷ്ട്രപതി തറക്കല്ലിടും വൈകീട്ട് ബംഗാരം ദ്വീപിലെ ത്തുന്ന രാഷ്ട്രപതി മറ്റന്നാൾ രാവിലെ കൊച്ചിയിൽ തിരിച്ചെത്തും

യുവിലെ അക്രമസംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സൂപ്രധാന വിവിരങ്ങൾ ലഭിച്ചതായി ഡൽഹി പൊലീസ് അറിയിച്ചു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേ ഷണം പുരോഗമിക്കുകയാണെന്ന് പൊലീസ് വക്താവ് എം എസ് രന്ധവ ന്യൂഡൽഹിയിൽ പറഞ്ഞു കേസിന്റെ കാര്യത്തിൽ പൊലീസിന്റെ ഭാഗത്ത് കാലതാമസം ഉണ്ടായെന്ന ആരോപണം അദ്ദേഹം നിഷേധിച്ചു

യു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു രാജ്യത്ത് യുവാക്കളുടേയും വിദ്യാർഥികളുടേയും ശബ്ദം ഓരോ ദിവസവും അടിച്ചമർത്തപ്പെടുകയാ ണെന്നും യുവാക്കൾക്ക് നേരെ ഭയാനകരമായ അക്രമമാണ് നടന്നതെന്നും അവർ ഡൽഹിയിൽ ആരോപിച്ചു കലാലയങ്ങളിൽ ഭാവിയിൽ ഇന്റേണൽ മാർക്ക് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വിദ്യാർഥികൾക്ക് പഠനത്തോ ടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് അവസരമുണ്ടാക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ഫാറൂഖ് കോളജിൽ ചീഫ് മിനിസ്റ്റേഴ്സ് സ്റ്റുഡന്റ് ലീഡേഴ്സ് കോൺക്ലേവിൽ വിദ്യാർഥികളുമായി സംവദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്കൂൾ കോളജ് അസംബ്ലികളിൽ ഭര ണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കു മെന്ന് അദ്ദേഹം പറഞ്ഞു ലൈംഗീക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെ ടുത്തുന്നതിന് നടപടി സ്വീകരിക്കും ക്യാംപസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി വൃക്ത മാക്കി

ജനകീയ ദുരന്ത നിവാരണ സേനയിൽ വിദ്യാർഥികൾക്ക് മതിയായ അവസരം നൽകുമെന്നും പിണറായി അറിയിച്ചു ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിക്കുമ്പോഴും കൃഷിക്കാരന് ന്യായവില ലഭിക്കാത്ത സ്ഥിതിയാണുളളതെന്നും ഇത് പരിഹരിക്കാൻ ഉൽപന്നങ്ങളുടെ മൂല്യവർദ്ധനയിലൂടെ മാത്രമേ കഴിയുകയുവെന്നും കേന്ദ്രസഹമന്ത്രി പർഷോത്തം ഖോദഭായ് റുപാല പറഞ്ഞു

മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനം അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം തുടങ്ങിയ വിഷയങ്ങളും ഇതോടൊപ്പം സുപ്രീംകോടതി പരിഗണിക്കും

എസ് ഒഴികെ തൊഴിലാളി സംഘടനാ നേതാക്കൾ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

പാൽ പത്രം ആശുപത്രി തുടങ്ങിയ അവശ്യ സർവ്വീ സുകളെയും ടൂറിസം മേഖലയെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടു ണ്ട് ശബരിമല തീർത്ഥാടന വാഹനങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു

രാത്രി ഏഴിന് മത്സരം ആരംഭിക്കും ഗോഹട്ടിയിൽ ആദ്യ മത്സരം മഴ മൂലം മുടങ്ങിയതിനാൽ മൂന്നു മത്സര പരമ്പര നേടാൻ ഇന്നത്തെ മത്സരം ഇരു ടീമുകൾക്കും നിർണ്ണായകമാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ഒഡീഷ്യ എഫ് സിക്ക് ജയം ഭുവനേശ്വറിൽ ചെന്നൈ എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് ഒഡീഷ്യ തോൽപിച്ചത്

പട്ടികവർഗ വികസന വകുപ്പ് കോഴിക്കോട് സംഘടിപ്പിച്ച സർഗോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിച്ച ഇരിങ്ങൽ സർഗാലയെയും കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഉൾപ്പെടുത്തി ടൂറിസം കോറിഡോർ രൂപീകരിക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ടി

വടകരയിൽ ഇരിങ്ങൽ സർഗാലയയിൽ അന്താഷ്ട്ര കരകൌശല പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെആരോഗ്യ മേഖല വികസിത രാജ്യങ്ങളോട് കിട പിടിക്കുന്നതാണെന്ന് മന്ത്രി കെ

കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ പിവിധ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ജീവിതശൈലീ രോഗങ്ങൾ ചെറുക്കാൻ ആരോഗ്യസേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് കോട്ടയം ജനറൽ ആശുപത്രിയുടെ ഭരണനിർവഹണ വിഭാഗം കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിയന്ത്രണം നിലവിൽ വന്ന സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നത് തടയണമെന്നും പുഴയോരത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ബോധവൽക്കരണം നൽകണമെന്നും മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ പരാതി പരിഹാര അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നാടിന്റെ വികസനം ബഹുജന പങ്കാളിത്തത്തോടെ വേണമെന്ന് മന്ത്രി എ

തൃശൂർ പഴയന്നൂരിൽ ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് മിഷൻ കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം

തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലെ വിദ്യാലയങ്ങൾ കൂടി കമ്മിറ്റി സന്ദർശിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പോളിടെക്നിക് കോളേജുകളിലെ പഠന നിലവാരമുയർത്താൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഡോ

തിരൂരങ്ങാടി ഗവ പോളിടെക്നിക് കോളജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെയും സിൽവർ ജൂബിലി ആഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക വികസനത്തിൽ ഗവൺമെന്റും ജനങ്ങളും തമ്മിലെ കണ്ണികളായാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കൊല്ലത്ത് കില ഇ

സിയിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ പതിമൂന്നാമത് ബാച്ചിന്റെ രണ്ടാംഘട്ട ഇൻ സർവീസ് പരിശീലനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൌരത്വനിയമഭേദഗതിക്കെതിരായ നിലപാടുകളിൽ പിന്തുണ ആവശ്യപ്പെട്ട് കേരളം അയച്ച കത്തിന് പഞ്ചാബ് മുഖ്യമന്ത്രിയൊഴികെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പ്രതികരിക്കാത്തതും യോജിച്ച പ്രക്ഷോഭത്തിനെതിരെ കേരളത്തിൽ നിന്നും ഉയരുന്ന ശബ്ദങ്ങളും കൂട്ടിവായിക്കുമ്പോൾ ചില സംശയങ്ങളുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഐ സംഘടിപ്പിച്ച യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൌരത്വ നിയമത്തിൽ നിയമസഭ പ്രമേയം പാസാക്കിയതിന് കേരളത്തെ എതിർക്കു ന്നത് പ്രത്യേക അജൻഡയുടെ ഭാഗമായാണെന്ന് മന്ത്രി എ

കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ മഹോത്സവത്തിന് സമാപനം കുറി ച്ചുനടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം വൈദ്യർ പുരസ്കാരം ബാലകൃഷ്ണൻ വള്ളിക്കുന്നിനു വേണ്ടി മകൻ ജയപ്രകാശ് മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി പൌരത്വനിയമഭേദഗതിക്കെതിരെ രാജ്യ വ്യാപകമായി കോൺഗ്രസ് തെരുവിലിറങ്ങുമ്പോൾ സംഘടനാ സംവിധാനത്തിന്റെ ശക്തി ഉപയോഗപ്പെടുത്താതെ കേവലം വഴിപാട് സമരം മാത്രം നടത്തി സി

എം ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് കെ

പൌരത്വനിയമഭേദഗതിക്കെതിരെ എം കെ രാഘവൻ എം പി നയിക്കുന്ന ലോങ് മാർച്ച് കോഴിക്കോട് കൊടുവള്ളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവുമൊടുവിൽ മാത്രം നിലപാടെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

സംസ്ഥാനത്ത് സംഘർഷമുണ്ടാക്കാനാണ് ബി

പി ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ടാണ് അന്നത്തെ ദിവസത്തെ പ്രതിഷേധം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പൌരത്വനിയമം പിൻവലിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തിൽ എ

എഫിന്റെ നേതൃത്വത്തിൽ ദേശവ്യാപകമായി ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കുമെന്ന് എ ഐ

എഫ് ദേശീയ പ്രസിഡന്റ് അഫ്ത്താഫ് ആലംഖാൻ കോഴിക്കോട്ട് പറഞ്ഞു ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമങ്ങൾ വളരെ ആസൂത്രിതമാണെന്ന് അദ്ദേഹം ആരോപിച്ചു പാലക്കാട് ജില്ലയിലെ ഒന്നാംവിളയിൽ ഒരു ലക്ഷത്തി ഇരുപതിയൊരായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് ടൺ നെല്ല് സംഭരിച്ചതായി സപ്പൈക്കോ അറിയിച്ചു

വാഹനാപകടത്തിൽ പരിക്കേറ്റ് കൊച്ചിയിൽ ചികിത്സയിൽ ആയിരുന്ന യുവസം വിധായകൻ വിവേക് ആര്യൻ അന്തരിച്ചു